തൃശൂർ ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി കദീജക്കുട്ടിയാണ് മരിച്ചത്

മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ത ഉം പാൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച പശ്ചിമബംഗാളിലും ഒഡീഷയിലും സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തും

തൃശൂർ ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി കദീജക്കുട്ടിയാണ് മരിച്ചത്

മറ്റ് ആരോഗ്യപ്രശ്നങ്ങളുണ്ടായിരുന്ന പാലക്കാട് തൃശൂർ സ്വദേശികളായ രണ്ട് പേരെ മഞ്ചേരിയിലും കാസർഗോഡ് കോഴിക്കോട് സ്വദേശികളായ രണ്ട് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളജിലും പ്രവേശിപ്പിച്ചു രുര ദോഹയിൽ നിന്നും ഒമാനിൽ നിന്നും പ്രവാസികളുമായി രണ്ട് വിമാനങ്ങൾ കൊച്ചിയിലെത്തി

ഇവരെ വിവിധ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ദരദ ന്യൂഡൽഹി ജയ്പൂർ ജലന്ധർ എന്നിവിടങ്ങളിൽ നിന്ന് യാത്രക്കാരുമായി നാലു ട്രെയിനുകൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തും രുമ അഞ്ച് പ്രധാന ട്രെയിനുകൾ ജൂൺ ഒന്നിന് സർവീസ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കൌണ്ടർ ബുക്കിങ്ങിനായി സംസ്ഥാനത്തെ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ റിസർവേഷൻ കൌണ്ടറുകൾ ഇന്ന് തുറക്കും തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് സ്റ്റേഷനുകളിലാണ് രണ്ട് കൌണ്ടറുകൾ രാവിലെ എട്ടു മുതൽ പ്രവർത്തിക്കുക

മലപ്പുറത്ത് അഞ്ചും കണ്ണൂരിൽ നാലും കോട്ടയം തൃശൂർ ജില്ലകളിൽ മൂന്നു വീതവും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ രണ്ടു പേർക്ക് വീതവും ഇടുക്കി പാലക്കാട് കാസർകോട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

മൂന്നു പേർക്കും കോവിഡ് ലക്ഷണങ്ങൾ ഇല്ലായിരുന്നു ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി

നാദാപുരം പാറക്കടവ് സ്വദേശി യുടെ ഫലമാണ് നെഗറ്റീവായത്

രുമ ഉം പാൻ ചുഴലിക്കാറ്റ് നാശംവിതച്ച പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വ്യോമനിരീക്ഷണം നടത്തും ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

അതിനിടെ ചുഴലിക്കാറ്റ് ദുർബലപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു രുമ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ ഇന്ന് വൈകീട്ട് ഏഴിന് രാജ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോകളുമായി സംവദിക്കും രാജ്യത്തെ എല്ലാ കമ്മ്യൂണിറ്റി റേഡിയോകളും ഒരേ സമയം ഇത് പ്രക്ഷേപണം ചെയ്യും ഹിന്ദിയിലും ഇംഗ്ലീഷിലും രണ്ട് ഭാഗങ്ങളായാണ് പരിപാടി പ്രക്ഷേപണം ചെയ്യുക

നമ്മുടെ തനതായ ജൈവ ആവാസ വ്യവസ്ഥകളും ജൈവ വിഭവങ്ങളും വിളയിനങ്ങളും പരമ്പരാഗത അറിവുകളും പല വൈഷമ്യങ്ങളെയും നേരിടുന്നതിന് നമുക്ക് പിൻബലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൈവവൈവിധ്യ ദിനസന്ദേശത്തിൽ പറഞ്ഞു

ടി ജലീൽ വൈസ് ചാൻസലർമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ധാരണയായി അവസാനവർഷ പരീക്ഷകൾക്ക് മുൻഗണന നൽകും

സർവകലാശാലയുടെ പരിധിക്ക് പുറത്തെ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് അതത് ജില്ലകളിൽ പരീക്ഷാകേന്ദ്രങ്ങൾ അനുവദിക്കും അടുത്ത അദ്ധ്യയനവർഷം ക്ലാസുകൾ ജൂൺമാസത്തിൽത്തന്നെ ഓൺലൈനായി ആരംഭിക്കാനും തീരുമാനിച്ചു

കൊവിഡ് പശ്ചാത്തലത്തിൽ സമൂഹ നോമ്പ് തുറയും പള്ളികളിലെ കൂട്ട പ്രാർത്ഥനകളും ഒഴിവാക്കി വീടുകളിൽ തന്നെ ആരാധനകൾ പരിമിതപ്പെടുത്തിയാണ് ഇത്തവണത്തെ റമദാൻ വിടപറയുന്നത് ലോക്ക്ഡൌൺ കാരണം പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നിസ്കാരത്തിന് അനുമതിയില്ലാത്തതിനാൽ വീടുകളിൽ തന്നെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ മതപണ്ഡിതർ നിർദേശം നൽകിയിട്ടുണ്ട്

ശവ്വാൽ മാസപ്പിറവി ദർശിക്കുന്നവർ ഇന്ന് വിവരമറിയിക്കണമെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ വിവിധ ഖാസിമാർ അറിയിച്ചു രുമ റേഷൻ കടകൾ വഴി പലവ്യഞ്ജന കിറ്റ് വിതരണം ചൊവ്വാഴ്ച വരെ നീട്ടി

രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകീട്ട് മൂന്ന് മണി മുതൽ ഏഴ് മണി വരെയുമാണ് പുതുക്കിയ സമയം

പരീക്ഷ ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷ ഹാളിലെ ഫർണിച്ചർ അണുവിമുക്തമാക്കും